ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ യു

പോരാട്ടം

പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് മികച്ച പോളിംഗാണ് മിക്ക ഇടത്തും

അവസാന പോളിംഗ് നില ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ

ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി സമാജ് വാദി പാർട്ടി നേതാവ് മുലായം സിങ് യാദവ് തുടങ്ങിയവരും ബി ജെ പി നേതാവ് വരുൺഗാന്ധി ജയപ്രദ സമാജ് വാദി പാർട്ടിയിലെ അസംഖാൻ പി ഡി പി അധ്യക്ഷൻ മെഹ്ബൂബ മുഫ്തി എൻ സി പി യിലെ സുപ്രിയ സുലൈ തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടിയവരിൽ പ്രമുഖർ ഒഡീഷയിലെ നാലും ഗോവയിലെ മൂന്നും നിയമസഭ സീറ്റുകളിലേയ്ക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു

ചില പോളിംഗ് ബൂത്തുകളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ഉ ായ തകരാറിനെ തുടർന്ന് പോളിംഗ് വൈകിയതൊഴി ച്ചാൽ വോട്ടിംഗ് പൊതുവെ സുഗമമായാണ് നടന്നത് കനത്ത സുരക്ഷയുടെ നടുവിലാണ് ത്രിപുരയിൽ വോട്ടിംഗ് നടന്നത്

പശ്ചിമബംഗാളിലും വോട്ടെടുപ്പിനിടെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളു ായി മൂർഷിദാബാദിൽ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തേറ്റു മരിച്ചു

ജില്ലാ ഭരണകൂടത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടു ്

ബീഹാറിൽ വോട്ടെടുപ്പ് സമാധാനപ്പ്രമായിരുന്നു

ഛത്തീസ്ഗഡിലും ത്രിപുര ഈസ്റ്റ് നിയോജ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് ഉ ായത്

അതേസമയം സംസ്ഥാനത്ത് അക്രമസംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

വോട്ടിംഗ് സമയം അവസാനിച്ചതിന് ശേഷവും സംസ്ഥാനത്ത് പലയിടത്തും പോളിംഗ് തുടർന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്തി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ എൻ

എ ഗവൺമെന്റിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഒന്നും ഉയർന്നിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു കോൺഗ്രസിനുവേ രാഹുൽഗാന്ധി മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് ഇന്ന് പ്രചാരണം നടത്തിയത്

നടപടി എടുക്കാതിരിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്

രാഹുൽഗാന്ധിയുടെ പരാമർശം അനുചിതമെന്ന് നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു

രാഹുൽഗാന്ധിക്കെതിരെ ബി ജെ

തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിൽ നടത്തിയ പ്രതികരണമെന്ന് ശ്രീ

തന്റെ വിശദീകരണം അംഗീകരിച്ച് ഹ്റർജി തള്ളണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിക്കുക്യായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നയിക്കുന്ന ബെഞ്ചാണ് വാദം കേൾക്കുന്നത്

എസ് തീരുമാനം നേരിടാൻ ഇൻഡ്യ സന്നദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇൻഡൃയുടെ ഉൌർജ്ജ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി തുടർന്നും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡ്യ ചൈന ജപ്പാൻ ദക്ഷിണകൊറിയ ടർക്കി എന്നീ അഞ്ചു രാജ്യങ്ങൾക്ക് ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നപക്ഷം ഉപരോധം നേരിടേ ി വരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു ഉപരോധത്തിന് അനുവദിച്ച ഇളവ് മേയ് ര ിന് അവസാനിക്കാനിരിക്കെയാണ് യു

പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മുസ്തീം ജനത അക്രമികൾക്ക് എതിരാണെന്നും യുദ്ധം അവർ അനുവദിക്കില്ലെന്നും ശ്രീല്ക്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ പറഞ്ഞു

പ്രാദേശിക ജിഹാദി സംഘടനയാണ് സംഭവത്തിന് പിന്നിലെന്ന് ശ്രീലങ്ക നേരത്തേ വ്യക്തമാക്കിയിരുന്നു

ഈസ്റ്റ് ഡൽഹിയിൽ മുൻ ക്രിക്കറ്റ് താരം ഗൌതം ഗംഭീർ ബി ജെ

ബി ജെ പി വക്താവ് മീനാക്ഷി ലേഖി ന്യൂഡൽഹിയിൽ നിന്ന് വീ ും ജനവിധി തേടും ഗായകൻ ഹൻസ്രാജ് വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നും രമേശ് ബിദൂരി സൌത്ത് ഡൽഹിയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികളാകും കോൺഗ്രസിന്റെ അരവിന്ദർ സിങ് ലൌലിയും ആം ആദ്മി പാർട്ടിയുടെ അദീഷിയുമാണ് ഈസ്റ്റ് ഡൽഹിയിൽ ഗംഭീറിന്റെ എതിരാളികൾ ആം ആദ്മി പാർട്ടിയുടെ ബ്രജേഷ് ഗോയലും കോൺഗ്രസിന്റെ അജയ് മാക്കനുമായാണ് മീനാക്ഷി ലേഖിയുടെ പോരാട്ടം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഏഴു സീറ്റുകളിലും ബി ജെ പിയാണ് വിജയിച്ചത് സൌത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് വിജേന്ദർ സിങ്ങിനെ കോൺഗ്രസ് മത്സരിപ്പിക്കും

ന്യൂഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ നിർമ്മല സീതാരാമൻ എന്നിവരുടെ സാന്നിധൃത്തിലാണ് അംഗത്വം സ്വീകരിച്ചത് പ്രധാനമന്ത്രിയായി നരേങ്ങ്രമോദിയെ രാജ്യത്തിന് ആവശൃമാണെന്ന് അദ്ദേഹം പറഞ്ഞു

വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി അമിത് ഖാരെയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് ആകാശവാണിക്കുവേ ി ഡയറക്ടർ ജനറൽ എഫ് ഷെഹെർയാർ വാർത്താവിഭാഗം ഡയറക്ടർ ജനറൽ ഇറാജോഷി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർകിങ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദ്രാബാദിനെ നേരിടും ചെന്നൈയിൽ നടക്കുന്ന മത്സരം രാത്രി എട്ട് മണിക്കാണ് നിലവിലെ ചാമ്പൃന്മാരായ ചെന്നൈ പോയിന്റ് നിലയിൽ ഡൽഹിയ്ക്ക് പിന്നിൽ ര ാമതാണ്